തദ്ദേശീയമായി നിർമിച്ച പടക്കപ്പൽ ഐ

എസ് കവരത്തി ഇന്ത്യൻ നാവികസേന നീറ്റിലിറക്കി

ബിഹാറിൽ കേന്ദ്രം നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഗുണഫലം ദൃശ്യമാകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്

എസ് കവരത്തി ഇന്ത്യൻ നാവികസേന നീറ്റിലിറക്കി

ഇത്തരത്തിൽ നാലു കപ്പൽ നിർമിച്ചതിൽ അവസാനത്തേതാണിത് വിശാഖപട്ടണത്തെ നാവികസേന കപ്പൽശാലയിൽ നടന്ന ചടങ്ങളിൽ കരസേന മേധാവി മനോജ് മുകുന്ദ് നരവനെയാണ് കപ്പൽ നാവികസേനയ്ക്ക് കൈമാറിയത് നാവികസേനയുടെ കീഴിലുള്ള നേവൽ ഡിസൈൻ ഡയറക്ടറേറ്റ് രൂപകല്പന ചെയ്ത പ്പെട്ട എൻ എസ്പ് കവരത്തി നിർമ്മിച്ചത് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണ ശാലയിൽ ആണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കാളിയായ ഇന്ത്യൻ യുദ്ധകപ്പൽ ഐഎൻഎസ്റ് ക്വരത്തിയുടെ സ്മരണയിലാണ് പടക്കപ്പലിന് ഈ പേര് നൽകിയ്ത്

അതിർത്തിയിലെ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ അസം സർക്കാർ കൈക്കൊണ്ട നടപടികളെക്കുറിച്ച് അദ്ദേഹം ആരാഞ്ഞു അസം മിസോറം അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും ശ്രീ

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ

ഓരോ ദശലക്ഷം പ്പേരിലൂം ഏറ്റവും കുറവ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ശ്രാജ്യമായി ഇന്ത്യ തുടരുന്നതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു് ക്രേന്ദ്രം കാര്യക്ഷമമായി നടപ്പാക്കിയ പരിശോധന കണ്ടെത്തൽ ചികിത്സാ നയമാണ് രോഗമുക്തി നിരക്ക് വർദ്ധിക്കാനും മരണ നിരക്ക് കുറയ്ക്കാനും സഹായകമായതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

ആഗോളതലത്തിൽ മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ

സി എം ആർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐ

ചെലവ് കുറച്ച് എത്രയും വേഗം പരമാവധി കൃത്യതയോടെ കോവിഡ് പരിശോധന നടത്താൻ ലക്ഷ്യമിട്ടാണ് ഈ സാങ്കേതികവിദ്യക്കു രൂപം നൽകിയത്

രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്

നിർഭയ നിലപാടുകളിലൂടെയും ആവേശം കൊള്ളിക്കുന്ന കവിതയിലൂടെയും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ രാജ്യ സ്നേഹവും ഐക്യവും ഉണ്ടാക്കിയിതായി ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു

തന്റെ ആത്മാർത്ഥതയിലൂടെയും കഴിവിലൂടെയും അമിത്ഷാ രാജ്യ പുരോഗതിക്കായി മഹത്തായ സംഭാവനകളാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

എല്ലാ പെൺകുട്ടികളെയും ദുർഗ്ഗയായി ആചരിക്കുന്നതാണ് ഇന്ത്യൻ സംസ്കാരം സ്ത്രീശാക്തീകരണത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രവിശങ്കർ പ്രസാദ് പറഞ്ഞു പട്നയിൽ വിവിധ ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണയോഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം തന്നെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചാൽ യുവാക്കൾക്ക് സംസ്ഥാനത്തിന് പുറത്തു പോയി തൊഴിൽ എടുക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജെ

പി നേതാവ് ഉപേന്ദ്ര കുഷ്വാഹയും ഇടതു പാർട്ടികളിലെ നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്

നാലു സീറ്റുകൾ ബിരുദധാരികൾക്കും നാലു സീറ്റുകൾ അധ്യാപകർക്കുമാണ് മാറ്റിവച്ചിരിക്കുന്നത്

ചർച്ചയിൽ പങ്കെടുക്കാനായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറ്റി മൈക്ക് പോംപിയോയും സെക്രട്ടറി മാർക്ക് ടി എസ്പറും ഇന്ത്യയിൽ എത്തും ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് രാജ്യരക്ഷ്മാ മ്ന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യ മന്ത്രി എസ് ജയശ്രങ്കരൂം ചർച്ചയിൽ പങ്കെടുക്കും

എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺ റൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും

കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നോട്ടീസ്

ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞ ശനിയാഴ്ച ബാന്ദ്ര കോടതി ഉത്തരവിട്ടിരുന്നു

ചിലഹട്ടി ഹൽഡിബാരി പാത ഈ വർഷം ഡിസംബറിൽ വിജയദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

രാജ്യത്തിന്റെ പ്രതിരോധ പദ്ധതിയിൽ വാക്സിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആരോഗൃ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്

ഇത് കൂടിാതെ തൊഴിലാളികളുടെ മക്കൾക്ക് പുസ്തകങ്ങൾ വാങ്ങ്ാന്ുള്ള ധനസഹായവും സർക്കാർ നൽകുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്

കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്കു ഏഴ് ദിവസം മാത്രമേ പ്രവേശനാനുമതി നൽകൂ ക്വാറന്റീൻ ഉറപ്പാക്കണം